കരുതൽ ധനശേഖരം പ്രീനിയോഗിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ഉന്നതാധികാര സമിതി രൂപീകരിക്കും

ഇന്ന് ഗോവയിലെ പനാജിയിൽ തുടക്കമാകും

മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ന് പമ്പയിലെത്തും

ഡി എഫ് ബി ജെ

ഇന്ത്യൻ താരങ്ങളുടെ ക്വാർട്ടർ ഫൈനൽ മത്സരം ഇന്ന്

വനിത പോളിംഗ് ഉദ്യോഗിസ്മർമാത്രമുള്ള വനിത സൌഹൃദ പോളിംഗ് ബൂത്തുകളും ഇക്കുറി ഒരുക്കിയിട്ടുണ്ട്

ഇന്നലെയായിരുന്നു പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വ്യാഴാഴ്ച വരെ പത്രിക പിൻവലിക്കാം

മധ്യപ്രദേശിൽ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ പ്രചരണരംഗത്തുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജാബുവ റിവാ എന്നിവടങ്ങളിൽ പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും

പോളിംഗ് അവസാനിക്കുന്ന ഉടൻ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും

ഇക്കാര്യം അടക്കം പുതിയ സമിതി പരിശോധിക്കും

കൂടുതൽ വിവരങ്ങളുമായി ഗോപകുമാർ

ഇതിൽ രണ്ടും മലയാളത്തിൽ നിന്നാണ് ലിജോ ജോസ്പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ഇ മാ യൌ ജയരാജ് സംവിധാനം ചെയ്ത ഭയാനകം എന്നിവയാണ് മത്സരവിഭാഗത്തിൽ ഇടം നേടിയ മലയാള സിനിമകൾ

കരുൺ സംവിധാനം ചെയ്ത ഓള് ആണ് പനോരമ വിഭാഗത്തിലെ ഉദ്ഘാടന ചിത്രം

സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഇസ്രയേലി സംവിധായകൻ ഡാൻ ഓൾമാന് നൽകും ശ്യാം പ്രസാദ് മുഖർജി സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ബോളിവുഡ്ഡ് താരം അക്ഷയ്കുമാർ അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കും ന്യൂസ്ഡെസ്ക് ആകാശവാണി

ശബരിമലയിൽ ഭക്തർക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ നിഷേധിച്ച് മനുഷ്യാവകാശ ലംഘനം നടത്തുകയാണെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സന്ദർശനം യുഡിഎഫ് ബി ജെ

ശബരിമലയിലെ നിരോധനാജ്ഞ എടുത്തു കളയണമെന്നാവശ്യപ്പെട്ടാണ് യു ഡി

പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഘടകക്ഷി നേതാക്കൾ എന്നിവർ സംഘത്തിലുണ്ടാകും തീർത്ഥാടകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനായി ബി ജെ പി എം പി മാരായ വി മുരളീധരനും നളീൻ കുമാർ കട്ടീലും ഇന്ന് സന്നിധാനത്തെത്തും

ജെ പി നേതാക്കളും അവർക്കൊപ്പം ഉണ്ടാകും കേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണൻ നാളെ ശബരിമല സന്ദർശിക്കും

നെയ്യഭിഷേകത്തിന് അടക്കം ഭക്തർക്ക് എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നും പോലീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു സന്നിധാനത്ത് ഭക്തർക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി ഒരു വിഭാഗം മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ തെറ്റിദ്ധാരണാജനകമാണ്

ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന ശബരിമലയിൽ എല്ലാവർക്കും തുല്യാവസരം നൽകുന്നതിനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു

കൂടുതൽ വിവരങ്ങളുമായി ഗ്രോപ്പകുമാർ

കുട്ടിക്രിക്കറ്റിൽ ഓസ്ട്രേലിയയ്ക്കുമേൽ പൂർണ ആധിപത്യമുണ്ടെന്ന ആത്മവിശ്വാസവുമായാണ് ഇന്ത്യൻ ടീം ഇറങ്ങുന്നത്

ശക്തമായ സംഘവുമായാണ് ഇന്ത്യ ഓസ്ട്രേലിയിൽ എത്തിയിരിക്കുന്നത്

മൂന്ന് ഏകദിന മത്സരവും മൂന്ന് ടെസ്റ്റും ഇരുരാജ്യങ്ങളും തമ്മിൽ കളിക്കും ന്യൂസ്ഡെസ്ക് ആകാശവാണി

രണ്ടു കളികളിൽ നിന്ന് ഏഴ് പോയിന്റുമായി എലൈറ്റ് ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പുകളിൽ മൂന്നാം സ്ഥാനത്താണ് കേര്ളം

സെമിയിൽ കേരളം ബംഗാളിനോട് ഷൂട്ടൌട്ടിൽ തോറ്റു

മികച്ച പ്രതിരോധതാരമായി കേരളത്തിന്റെ വി ബിജോയ് തെരഞ്ഞെടുക്കപ്പെട്ടു

ഇന്നലെ മുതൽ രക്ഷാ പ്രവർത്തനം ദ്രുതഗതിയിൽ തുടരുകയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു